വെങ്കയ്യ നായിഡു

വാർത്തകൾ വിശദമായി രാജ്യത്തിന്റെ സമ്പന്നവും സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിൽ യുവാക്കൾ അഭിമാനിക്കണമെന്ന് ഉപരാഷ്ട്രപതി നായിഡു പറഞ്ഞു

തിരുവന്തപുരത്ത് സംഘടിപ്പിച്ച പി പരമേശ്വരൻ അനുസ്മരണത്തിൽ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി പരമേശ്വർജി കാട്ടി തന്ന പാത പിന്തുടർന്ന് കൂടുതൽ ശക്തവും സന്തുഷ്ടവും സമ്പന്നവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കണമെന്ന് ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആവശ്യപ്പെട്ടു

രംഭ സ്വകാര്യ സംരംഭകർക്ക് വാക്സിൻ മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യാൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ചിട്ടയായി മുൻഗണനാ ക്രമമനുസരിച്ചാണ് നൽകുന്നത് സാങ്കേതിക തകരാർമൂലം ചിലർക്ക് വാക്സിൻ ലഭിക്കാതെ പോയത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ അനുവദിക്കില്ലെന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇതു സംബന്ധിച്ച ധാരണാപത്രം ആഴക്കടൽ നയം മത്സ്യബന്ധനത്തിന് പ്രോത്സാബനം നൽകുന്നതല്ലെന്നും ഇതിന് ഗവൺമെന്റിന്റെ പിന്തുണ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ധാരണാപത്രം റദ്ദാക്കിയത് തെറ്റിദ്ധാരണ അവശേഷിക്കരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

രും കുറഞ്ഞ സമയംകൊണ്ടു കൂടുതൽ പേർക്കു കോവിഡ് വാക്സിൻ നൽകുന്നതിനു തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച കോവിഡ് സ്പെഷ്യൽ വാക്സിനേഷൻ പദ്ധതി വൻ വിജയം

വാക്സിൻ നൽകുന്നതിന് അഞ്ചു ബൂത്തുകളാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരുന്നത്

രും രാജ്യത്തെ ആദ്യ കളിപ്പാട്ട മേളയ്ക്ക് നാളെ വെർച്വലായി തുടക്കമാകും കളിപ്പാട്ട നിർമ്മാണ മേഖല ശക്തിപ്പെടുത്തുന്നതിനും കളിപ്പാട്ട നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുന്നതിനും ലക്ഷ്യമിട്ടാണ് അടുത്തമാസം രണ്ടു വരെ ദേശീയ കളിപ്പാട്ട മേള സംഘടിപ്പിക്കുന്നത്

വോയ്സ് രുര കളിപ്പാട്ടമേളയെ ഏറ്റവും വലിയ അവസരമായാണ് രാജ്യത്തെ കളിപ്പാട്ട നിർമാതാക്കൾ കാണുന്നത്

ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ എന്താണെന്നും ഗുണനിലവാരം ഡിസൈൻ പാക്കേജിംഗ് എന്നിവയിൽ മികച്ചത് ഏതാണെന്നും മനസ്സിലാക്കാൻ മേള അവസരമൊരുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി രും തിരുവനന്തപുരത്ത് ഇന്നലെ അന്തരിച്ച കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചയ്ക്ക് രണ്ടിന് ശാന്തി കവാടത്തിൽ നടക്കും

ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ തൈക്കാട്ടെ വീട്ടിലായിരുന്നു വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ അന്ത്യം

പത്മശ്രീ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രുഭ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ വിയോഗം മലയാള സാഹിത്യത്തിന് തീരാനഷ്ടമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

രുര അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടു ദിവസം കൊണ്ട് പത്തു വിക്കറ്റിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തകർത്തത്

അടുത്ത മാസം നാലിന് ഇതേ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ജയിച്ചാൽ ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കാം രുമ രണ്ടാമത് ഖേലോ ഇന്ത്യാ ദേശീയ വിന്റർ ഗെയിംസ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെയും ജമ്മു കാശ്മീർ സ്പോട്സ് കൌൺസിൽ ജമ്മു കാശ്മീർ വിന്റർ ഗെയിംസ് അസോസിയേഷൻ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അടുത്ത മാസം രണ്ടുവരെയാണ് ഗെയിംസ്

സി തോൽപ്പിച്ചു

സിയെ ജംഷഡ്പൂരിന്റെ അവസാന ലീഗ് മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബംഗുളൂരുവിനെ കീഴടക്കിയത് ജയത്തോടെ ജംഷഡ്പൂർ ആറാം സ്ഥാനത്തെത്തിയപ്പോൾ ബംഗുളൂരു ഏഴാം സ്ഥാനത്തായി

മൂന്ന് മത്സരങ്ങൾ മാത്രം ജയിച്ച് ലീഗിൽ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന മത്സരമാണിന്ന് രുര ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് തിരുവനന്തപുരം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കം

രും മലപ്പുറം ജില്ലയിൽ വാഴക്കാട് അരീക്കോട് പരപ്പനങ്ങാടി പ്രദേശങ്ങളിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

ഐസ് ഐസ്ക്രീം സിപ്പ് അപ്പ് മുതലായവ ഉണ്ടാക്കുന്നതിന്ന് ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പ് വരുത്തുന്നതിനാവശ്യമായ പരിശോധനകൾ നടത്തുന്നതിനും നിയമ ലംഘനങ്ങൾ കാണുന്ന പക്ഷം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും നിർദേശങ്ങൾ നൽകിയതായും ഡി എം ഒ പറഞ്ഞു രും പമ്പ കേച്ചേരി മണിമല കരമന നദികളെ മാലിന്യമുക്തമാക്കുന്നതിന് വിശദ പദ്ധതിരേഖ സമർപ്പിച്ചു തിരുവനന്തപുരത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കാണ് സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിങ് കോളജുകളുടെ സഹകരണത്തോടെ തയാറാക്കിയ പദ്ധതി രേഖ കൈമാറിയത്

രും കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ദേശീയ അംഗീകാരം ഒറീസയിലെ കൊണാർക്കിൽ നടന്ന ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം അവാർഡിൽ ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേർഡ് സ്റ്റേറ്റ് കാറ്റഗറിയിൽ കേരളം ഗോൾഡ് അവാർഡ് നേടി

കലാകാരൻമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് സാംസ്കാരിക സമുച്ചയങ്ങൾ ഉയരണമെന്ന് മന്ത്രി പറഞ്ഞു ദര ഭാഷാപിതാവ് എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് പവിത്രമായ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്നവർ മതേതരത്വം പ്രസംഗിക്കരുതെന്ന് ബി

പി സംസ്ഥാന അധ്യക്ഷൻ കെ

തുഞ്ചൻ പ്രതിമ തിരൂരിൽ സ്ഥാപിച്ചാൽ എന്ത് അപകടമാണ് മതേതരത്വത്തിന് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു വിജയ യാത്രയ്ക്ക് മലപ്പുറത്തു നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ രും വിജയയാത്ര ഇന്ന് പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തും രുര എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥകൾ ഇന്ന് സമാപിക്കും എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ വൈകീട്ട് തൃശൂരിൽ സമാപിക്കും